അംഗീകാരം അംഗീകാരം ലഭിച്ചവയിൽ മുത്തലാഖ് ഓർഡിനൻസും

കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി

ഇന്ത്യൻ മെഡിക്കൽ ഭേദഗതി ര ാം ഓർഡിനൻസ് കമ്പനീസ് ഭേദഗതി ര ാം ഓർഡിനൻസ് അനധികൃത നിക്ഷേപം തടയൽ ഓർഡിനൻസുകൾക്കാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് മുൻപത്തെ ഓർഡനൻസിന് അനുസൃതമായി നിയമിച്ച ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ പ്രവർത്തനങ്ങൾ തുടരാമെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ഓർഡിനനൻസ് ര ാം ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ മേൽനോട്ടം വഹിക്കാൻ നിയമിച്ചിട്ടുളള ബോർഡിന് അടുത്ത ര ചില കമ്പനികൾക്ക് വൃതൃസ്ത ധനകാരൃ വർഷം പിൻതുടരാൻ കേന്ദ്രഗവൺമെന്റിന് അനുവാദം നൽകാൻ അധികാരം നൽകുന്നതാണ് കമ്പനീസ് ഭേദഗതി ര ാം ഓർഡിനൻസ് രാജൃത്ത് അനധികൃതവും ക്രമരഹിതവുമായ നിക്ഷേപങ്ങൾ തടയുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് ക്രമരഹിത നിക്ഷേപങ്ങൾ നിരോധിക്കൽ ര ാം ഓർഡിനൻസ്

ദേശീയോദ്ഗ്രദനത്തിന്റെ പ്രോത്സഹനാർത്ഥം ഗാന്ധിജി നിരവധി ഇന്ത്യൻ ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്നതായി ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഹിന്ദി പരിപോഷിപ്പിക്കുന്നതിന് ഹിന്ദി പ്രചാര്യ സഭ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും രാഷ്ട്രപതിപറഞ്ഞു

തലസ്ഥാനമായ സോളിൽ യോൻസേർ സർവ്വകലാശാലാ ക്യാമ്പസിൻ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത അദ്ദേഹം ഇന്തൃ കൊറിയ വൃാപാര സെമിനാറിനെയും അഭിസംബോധന ചെയ്തു ഇന്തൃ കൊറിയ സ്റ്റാർട്ട് അപ്പ് ഹബ്ബിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു സന്ദർശന വേളയിൽ സോൾ സമാധാനപുരസ്ക്കാരവും അദ്ദേഹം ഏറ്റുവാങ്ങും

ഇന്ത്യയിലെ നിക്ഷേപസൌഹൃദ അന്തരീക്ഷത്തെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം

ഗതാഗതം ഊർജ്ജം തുറമുഖം നഗരങ്ങളിലെ അടിസ്ഥാന സൌകര്യം എന്നീ മേഖലകളിലാണ് ഇന്ത്യ കൂടുതൽ വികസിക്കേ ത് ഈ മേഖലകളിൽ നിക്ഷേപം നടത്തണമെന്നും പ്രധാനമന്ത്രി കൊറിയൻ വ്യവസായികളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തീവ്രവാദത്തിനും കാലാവസ്ഥാ മാറ്റത്തിനും ഉചിതമായ പരിഹാരമാണ് ഗാന്ധിയൻ ദർശനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവുമെന്നും പ്രധാനമന്ത്രി ചൂ ിക്കാട്ടി

മനുഷ്യാവകാശങ്ങൾക്കും ലോകസമാധാനത്തിനും നിലക്കൊള്ളുന്ന നേതാവാണ് ശ്രീ മോദിയെന്ന് അദ്ദേഹം ചൂ ിക്കാട്ടി

നെല്ലൂരിൽ ആകാശവാണിയുടെ ് എഫ് എം സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു അഭിമാനകരമായ ഈ പദ്ധതി വളരെവേഗം നടപ്പിലാക്കിയ് ആകാശവാണി ഡയറക്ടർ ജനറലിനെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു

പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസി യോഗി ആദിതൃ നാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ കാൺപൂർ അലഹബാദ് ഗാസിയാ ബാദ് ബറേലി അഫൈസാബാദ് സീറ്റുകളിൽ എസ് പി മത്സരിക്കും മീററ്റ് ആഗ്ര നോയിഡ അലിഗഡ് എന്നിവിടങ്ങളിൽ ബി എസ് പിയാണ് മത്സരിക്കുക

കോൺസ്റ്റബിൾമാർക്ക് പുറമേ ഹെഡ് കോൺസ്റ്റബിൾ എ എസ് ഐ എന്നിവർക്കാണ് പുതുതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലായം അനുമതി നൽകിയത്ത് എ എസ് ഐ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിലവിൽ പ്പിമാനയാത്രയ്ക്ക് അനുമതിയു ് സേനയിലെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം അംഗങ്ങൾക്ക് ഇതിന്റെ പ്രയ്യോജനം ലഭിക്കും

പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിന് പിന്നിൽ അണിനിരക്കുമ്പോൾ കോൺഗ്രസ് വിലകുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ പറഞ്ഞു സൈനികരുടെ വീരമൃത്യുവിൽ ജനങ്ങൾ ദുഖം പ്രകടിപ്പിക്കുമ്പോൾ ബിജെപി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചത് സംഭവത്തിൽ ഇമ്രാൻഖാന്റെയും കോൺഗ്രസിന്റെയും സ്വരം ഒന്നാണെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

ആന്ധ്രാപ്രദേശിലെ രാജ്മുപ്ര ിയിൽ ബിജെപി സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഭീകരാക്രമണത്തിൽ മരിച്ച സൈനികരുടെ കുടുംബത്തെ രാജ്യമൊട്ടാകെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ്സും ടിഡിപിയും രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണെന്നും ബിജെപി അധൃക്ഷൻ പറഞ്ഞു

ധാക്കയിലെ ഉ ചൌക്ക് ബസാറിൽ രാസവസ്തു സംഭരണശാല പ്രവർത്തിച്ചിരുന്ന ായത്

ദുരന്തത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി

ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ ചൂ ിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയത് നേരത്തെ അദ്ദേഹം ജാമ്യത്തിനായി ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം മെയിൽ അദ്ദേഹത്തിന് കോടതി ആറ് ആഴ്ചത്തെ ജാമ്യം അനുവദിച്ചിരുന്നു

മേഖലയിലെ പടിഞ്ഞാറൻ തലസ്ഥാനങ്ങൾ ലക്ഷ്യമാക്കി തങ്ങളുടെ ആധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്

അതേസമയം കേസിന്റെ അന്വേഷണം അടിയന്തിരമായി സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത് നിൽകി ഇതേ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്